സംസ്ഥാനത്ത് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ത കോവിഡ് നിയന്ത്രണങ്ങളിൽ സംസ്ഥാനത്ത് പുതിയ ഇളവുകൾ സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം

കേന്ദ്ര നിർദ്ദേശ പ്രകാരമാണ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വാക്സിൻ കുത്തിവെയ്പിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഡ്രൈറൺ നടത്തുന്നത് സംസ്ഥാനത്ത് വാക്സിൻ ഡ്രൈറണ്ണിന് നടപടിക്രമങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ

തിരുവനന്തപുരം ജില്ലയിലെ പുഴനാട് പ്രാഥമിക ആരോഗ്യകേന്ദ്രം പേരൂർക്കട ജില്ലാ മാതൃകാശുപത്രി കിംസ് ആശുപത്രി ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് പ്രാഥമിക ആരോഗ്യകേന്ദ്രം പാലക്കാട്ടെ നെന്മാറ സാമൂഹ്യ ആരോഗ്യകേന്ദ്രം വയനാട് ജില്ലയിലെ കുറുക്കാംമൂല പ്രാഥമിക ആരോഗ്യകേന്ദ്രത്തിലുമാണ് ഡ്രൈറൺ

വാക്സിൻ കാരിയർ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് സ്വകാര്യ മേഖലകളിലെ എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകർ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആശാവർക്കർമാർ ഐ സി ഡി എസ് അംഗൻവാടി ജീവനക്കാർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത് രുര കോവിഡിനെതിരെ അടിയന്തര സാഹചര്യങ്ങളിൽ പൂനെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉല്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതിന് വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തു സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും നൽകിയ അപേക്ഷകൾ പരിശോധിക്കാൻ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം

ഓക്സ്ഫോർഡ് സർവ്വകലാശാലയും ആസ്ട്ര സെനേകയും ചേർന്നാണ് കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചത് രും സംസ്ഥാന ഗവൺമെന്റ് കോവിഡ് നിയന്ത്രണങ്ങളിൽ കരുതലുകളോടെ ചില ഇളവുകൾ വരുത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗവും മാനസിക സാമൂഹിക ക്ഷേമവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിയന്ത്രണത്തിലെ ഇളവുകൾ ഇതനുസരിച്ച് സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം ആകെ സീറ്റുകളിൽ പകുതി എണ്ണത്തിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂ തിയേറ്ററുകൾ തുറക്കുന്ന അഞ്ചാം തീയതിക്ക് മുമ്പുതന്നെ അവ അണുമുക്തമാക്കണം ആരോഗ്യ വകുപ്പിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യവസ്ഥയുണ്ട് ജനുവരി അഞ്ചുമുതൽ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ അനുവദിക്കും ആളുകളുടെ പങ്കാളിത്തം നിശ്ചയിക്കപ്പെട്ട എണ്ണത്തിൽ കവിയാൻ പാടില്ല

പൊലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഇക്കാര്യം ഉറപ്പുവരുത്തണം നീന്തൽ ഉൾപ്പെടെ കായിക പരിശീലനങ്ങൾക്കും ഉപാധികളോടെ അനുവാദം നൽകും പ്രദർശന ഹാളുകളും നിയന്ത്രിത പങ്കാളിത്തത്തോടെ തുറക്കാവുന്നതാണ്

കെ ശൈലജ അറിയിച്ചു

മറ്റ് ജില്ലയിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

മുക്കം ഉൾപ്പെടെ എട്ട് നഗരസഭകൾക്കാണ് പുരസ്കാരം മികച്ച വീടുകൾക്ക് തിരുവനന്തപുരം മുടവൻമുഗളിലെ ജി ലക്ഷ്മി വർക്കല നഗരസഭയിലെ എ ആർ രാജശ്രീ ഇരിങ്ങാലക്കുടയിലെ ബബിത അഷ്റഫ് എന്നീ ഗുണഭോക്താക്കൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു

ഇവയിൽ യോഗ്യമായവ കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സപ്പിമെന്ററി പട്ടികയായി പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

രുമ ഇന്ത്യയ്ക്കും ബ്രിട്ടിനുമിടയിൽ നിർത്തിവെച്ച വിമാന സർവ്വീസുകൾ ഈ മാസം എട്ടിന് പുനഃരാരംഭിക്കും

രും മുതിർന്ന പൌരന്മാർക്ക് വീടുകളിൽ ഗവൺമെന്റ് സേവനം ലഭ്യമാക്കുന്നതടക്കം പത്ത് പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ വയോധികർ നേരിട്ട് ഓഫീസുകളിൽ എത്തേണ്ടതില്ലാത്ത തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തും മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സഹായം ജീവൻരക്ഷാ മരുന്നുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ സഹായം ലഭ്യമാക്കുന്നത് സാമൂഹ്യ സന്നദ്ധ സേനാംഗങ്ങളുടെ സഹായത്തോടെയായിരിക്കും പദ്ധതി

സർവ്വകലാശാലകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര പ്രശസ്തരായ ശാസ്ത്രജ്ഞരുമായും അധ്യാപകരുമായും ആശയവിനിമയം നടത്താൻ എമിനന്റ് സ്കോളേഴ്സ് ഓൺലൈൻ പരിപാടി ആരംഭിക്കും വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കുറഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് മികച്ച രീതിയിൽ ബിരുദപഠനം പൂർത്തിയാക്കുന്ന ആയിരം വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ ധനസഹായ പദ്ധതിയിൽ ഒരു ലക്ഷം രൂപ വീതം നൽകും

രംഭ കോഴിക്കോട് ആനക്കാംപൊയിൽ മുത്തപ്പൻപുഴയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി കോഴിക്കോട് വയനാട് ജില്ലകളിലെ വനംവകുപ്പ് സ്ക്വാഡുകളുടെ സഹായത്തോടെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് രാത്രി ആനയെ പുറത്തെത്തിച്ചത്